ന്യൂഡൽഹിയിൽ ഇന്ന് രാവിലെ നടക്കുന്ന എൻ

സി റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും

ഉരുളക്കിഴങ്ങ് ഗവേഷണവും വിപണനവും സംബന്ധിച്ച മൂന്നാമത് ആഗോള സമ്മേളനത്തിന് ഗുജറാത്തിൽ ഇന്ന് തുടക്കം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും

ആന്ധ്രാപ്രദേശിൽ നിയമസഭാ കൌൺസിൽ റദ്ദാക്കാനുള്ള പ്രമേയം സംസ്ഥാന നിയമസഭ ഐകകണ്ഠേന പാസ്സാക്കി

പൌരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് പ്രതിപക്ഷ പാർട്ടികൾ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതായി പ്രതിരോധമന്ത്രി രാജ്നാഥ് സിങ്

വിവിധ എൻ

സി

സാംസ്ക്കാരിക പരിപാടികളോടൊപ്പം തന്നെ സാഹസിക കായിക അഭ്യാസം നൃത്ത സംഗീത മേഖലയിലെ എൻ സി സി

ചടങ്ങിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവച്ച പ്രതിഭാശാലികളായ എൻ സി സി കേഡറ്റുകൾക്ക് പ്രധാനമന്ത്രി അവാർഡുകൾ വിതരണം ചെയ്യും

കേന്ദ്ര ആരോഗ്യവകുപ്പ് സെക്രട്ടറി പ്രീതി സ്ുഡാന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് നടപടികൾ വില്യിരുത്തിയത്

നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന അഞ്ച് സംസ്ഥാനങ്ങളിലെ വിവിധ വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥരുമായി ചേർന്ന് മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി

ടൂറിസ്റ്റ് വീസയിലെത്തിയ ചൈനീസ് പൌരനെ കൊൽക്കത്തയിൽ ഐസലേഷൻ വാർഡിലാക്കി

രോഗലക്ഷണം കണ്ട ഏഴ് പേരിൽ അഞ്ചു പേരുടെ പരിശോധന ഫലം നെഗറ്റീവ് ആണ്

മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വിളിച്ചുകൂടിയ പ്രത്യേക യോഗത്തിലാണ് തീരുമാനം സംസ്ഥാനത്തെ വിമാനത്താവളങ്ങളിലും ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലും സുരക്ഷ ശക്തമാക്കാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു

ഉരുളക്കിഴങ്ങുമായി ബന്ധപ്പെട്ട ഗവേഷണം വ്യാഷ്ക്ക് വ്യാപസായം തുടങ്ങിയ രംഗങ്ങളിൽ മാർഗ്ഗരേഖ രൂപീകരിക്കുകയ്ട്ടിണ് യോഗത്തിന്റെ ലക്ഷ്യം നാലു ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളന്തിൽ നെതർലാന്റ്സും സംഘാടന പങ്കാളിയാണ്

ധാരാളം വികസന സംരംഭങ്ങൾ കരാറിന്റെ ഭാഗമായി ബോഡോകൾക്ക് ലഭിക്കുമെന്നും പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു ബോഡോകളുടെ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് എല്ലാ സഹായങ്ങളും നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു അസം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടന നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഓഫ് ബോഡോലാന്റുമായാണ് കേന്ദ്ര ഗവൺമെന്റ് ധാരണാപത്രത്തിൽ ഒപ്പുവച്ചത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ മുഖ്യമന്ത്രി സർബാനന്ദ സോണോവാൾ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ത്രികക്ഷി കരാർ ഒപ്പുവച്ചത്

കേന്ദ്ര സംസ്ഥാന മേഖലകളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കുന്നതും സമിതിയുടെ ലക്ഷ്യമാണ്

കൌൺസിൽ റദ്ദാക്കാനുള്ള പ്രമേയം മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയാണ് ഇന്നലെ നിയമസഭയിൽ അവതരിപ്പിച്ചത്

ഇന്ത്യൻ പാർലമെന്റിന്റെയും ഇന്ത്യ ഗിപ്പൺമെന്റിന്റെയും അധികാര പരിധിയിൽ വരുന്ന വിഷയങ്ങളിൽ വിദേശ സംഘടനകൾ ഇടപെടുന്ന പ്രവണതയിൽ അദ്ദേഹം ആശങ്ക രേഖപ്പെടുത്തി ഇത്തരം നടപടികൾ അനാവശ്യമാണെന്ന് അഭിപ്രായപ്പെട്ട ഉപരാഷ്ട്രപതി ഭാവിയിൽ അവർ ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് ഒഴിവാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അറിയിച്ചു ന്യൂഡൽഹിയിൽ ഇന്നലെ നടന്ന ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ബില്ലിനെ അനുകൂലിച്ച് മംഗളൂരുവിൽ നടന്ന റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബിൽ ആരുടെയും പൌരത്വം നിഷേധിക്കില്ല ഇക്കാര്യത്തിൽ ഗവൺമെന്റ് ആരോടും വിവേചനം കാണിക്കില്ല എല്ലാവരോടും തുല്യനീതിയെന്ന ബി ജെ

പ്രകടന പത്രികയിലെ വാഗ്ദാനം പാലിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു

ഡൽഹിയിലെ റിതാലയിൽ നടന്ന റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ജവഹർലാൽ നെഹ്റു സർവ്വകലാശാലയിൽ ദേശവിരുദ്ധ മുദ്രാവാകൃങ്ങൾ വിളിച്ചവർക്കെതിരെ നടപടിയെടുക്കാൻ ഡൽഹി ഗവൺമെന്റ് പോലീസിന് അനുമതി നിഷേധിച്ചതായും ഷാ കുറ്റപ്പെടുത്തി

എസ് ഡോളർ സമ്പദ്വ്യവസ്ഫയായി മാറാൻ സാധിക്കുമെന്ന് കേന്ദ്രമന്ത്രി പിയൂഷ് ഗോയുൽ ക്യൂഡൽഹിയിൽ ഇന്നലെ വ്യവസായികളുടെയും വ്യാപാരികളുടെയുട്ടിക്ട്യാഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ഗവൺൺമൺൺൺ വിവിധ പദ്ധതികൾ രാജ്യത്തിന്റെ വളർച്ച ത്വരിതപ്പെടുത്തീയുതായി അദ്ദേഹം പറഞ്ഞു

ഇതിന്റെ ഭാഗമായി വനിതാപോലീസുകാർ ഉൾപ്പെട്ട പട്രോളിംഗ് ടീമിനെ നിയോഗിക്കും

വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ പഞ്ചായത്തുകൾ സന്ദർശിച്ച് പരാതികൾ സ്വീകരിക്കുന്ന നിലവിലുള്ള സംവിധാനം വിപുലീകരിക്കും

സന്ദർശനത്തിനിടെ അവർ കാണുന്ന പരാതിക്കാരുടേയും സ്ത്രീകളുടെയും വിവരങ്ങൾ ഉൾപ്പെടെ ജനമൈത്രി സുരക്ഷ പദ്ധതിയുടെ ഭാഗമായി ക്രൈംഡ്രൈവ് ആപ്പിൽ ഉൾപ്പെടുത്തും മുതിർന്ന പോലീസുദ്യോഗസ്ഥർക്ക് ഈ വിവരങ്ങൾ നേരിട്ട് നിരീക്ഷിക്കാൻ കഴിയും എല്ലാ ജില്ലകളിലും നിലവിലുള്ള വനിതാ പോലീസ് സ്റ്റേഷനുകൾ കേസ് അന്വേഷണത്തിലും സഹായിക്കും

വനിതാ സെല്ലുകളിൽ നിന്നുള്ള ഒരു വനിതാ ഇൻസ്പെക്ടറെ ഉൾപ്പെടുത്തി റെയ്ഞ്ച് തലത്തിൽ സ്ത്രീകൾ ഉൾപ്പെടുന്ന അന്വേഷണസംഘത്തിന് രൂപം നൽകും സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ഗുരുതരമായ കേസുകൾ ഇനിമുതൽ ഈ സംഘം അന്വേഷിക്കും

ചെന്നൈ തീരദേശ സേനാ ഉദ്യോഗസ്ഥരും കുടുംബാംഗങ്ങളും കപ്പലിന് വമ്പിച്ച സ്വീകരണമൊരുക്കി പ്രിയദർശിനി വിഭാഗത്തിലെ മൂന്നാമത്തെ വേഗ പട്രോൾ കപ്പലാണ് ആനി ബസന്റ് കൊൽക്കത്ത കിഡർപോറിലാണ് കപ്പൽ നിർമിച്ചത്

മതപരവും വ്യവസായപരവുമായ ആവശ്യങ്ങൾക്കായി മുസ്ത്രീങ്ങളും ജൂതന്മാരുമടങ്ങുന്ന ഇസ്രയേൽ പൌ്റ്റുന്മാർക്ക് സൌദിയിലേക്ക് പോകാൻ അവകാശമുന്നെ് ഇസ്രയേൽ ആഭ്യന്ത്ൽ മന്ത്രാലയത്തിന്റെ അറിയിപ്പിനു പിന്നാലെയാണ് സൌദി ഭരണക്കൂട്ടത്തിന്റെ തീരുമാനം ഇസ്താമിന്റെ വിശുദ്ധ നഗരമായ സൌദി അറ്റേബൃയിലേക്ക് ഇസ്രായേൽ പൌരന്മാരെ ക്ഷണിച്ചിട്ടില്ലെന്ന് സൌഭി വിദേശകാര്യ മന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാൻ സി

ഇസ്രായേലുമായി യാതൊരുവിധ ബന്ധവും തങ്ങൾക്ക്ക്ടില്ല എന്നും ഇസ്രയേൽ പൌരന്മാർക്ക് സൌദി സന്ദർശിക്കാൻ ഇപ്പോളാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു